പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും

തെരഞ്ഞെടുപ്പുകൾക്ക് അന്തിമ രൂപ്പട്ട നിൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈന്റ് യോഗം ചേരും

വാക്സിൻ കുത്തിവച്ചു

ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചു

പുതുച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജ്വേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിലെ ജിപ്മർ ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവ്വഹിക്കും

നരേന്ദ്ര മോദി തറക്കല്ലിടും

ആരോഗ്യമേഖലയിലെ ബജറ്റ് നിർദ്ദേശങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തെ വൻ സാമ്പത്തിക രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് വാക്സിന്റെ ഉല്പാദനം ഇനിയും വർദ്ധിപ്പിക്കേണ്ട സാഹചരൃമാണിപ്പോൾ

ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ഇത് നമ്മെ പ്രാപ്തമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു

ഐ

കളെ അടുത്ത തലത്തിലേയ്ക്ക് ഉയർത്തേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ പ്രഭവകേന്ദ്രമായി രാജ്യത്തെ ഐ ഐ റ്റികൾ മാറണമെന്ന് ശ്രീ

ഇതനുസരിച്ച് രാജ്യത്തൊട്ടാകെയുള്ള രൂണ്ട്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രതിവർഷ് ആറായിരം രൂപ നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ട്ട്രൂക്മാറും

പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുദീപ് ജെയിൻ വെള്ളിയാഴ്ച കൊൽക്കത്തയിലേക്ക് പോകും

കേരളത്തിനു പുറമെ പശ്ചിമ ബംഗാൾ തമിഴ്നാട് അസം പുതുച്ചേരി നിയമസഭകളുടെ കാലാവധി ഈ വർഷം മേയിലോ ജൂണിലോ അവസാനിക്കും

രാജ്യത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച് നിർമ്മിച്ചു ഉന്നത നിലവാരമുള്ള ആയുധങ്ങൾക്കും ഉപകരണങ്ങളുമാണ് വാങ്ങാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡിഫൻസ് റിസേർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡി

ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് വിഭിന്ന തൊഴിലുകൾ ഒരുക്കുന്ന ബൃഹത്തായ തൊഴിൽ പദ്ധതികളിൽ ഒന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെന്ന് ശ്രീ

ഐ സി യോഗത്തിലാണ് ഇ എസ് ഐ ഗുണഭോക്താക്കളുടെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ തീരുമാനിച്ചത് കൂടുതൽ വിവരങ്ങളുമായി പ്രിയ സുബ്ബുലക്ഷ്മി

രണ്ടര ലക്ഷത്തിലേറെ ഇ

ഐ

ഹൈദരാബാദിലെ ഇ

ഐ സി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നവീന സജ്ജീകരണങ്ങളോടു കൂടിയ പുതിയ ഐ

ഐ ഗുണഭോക്താക്കളുടെ ചികിത്സാനുകൂല്യങ്ങൾ സ്ത്രീ തൊഴിലാളികളുടെ പ്രസവാനുകൂല്യം എന്നിവ സംബന്ധിച്ചും ചർച്ച ചെയ്തു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പുതുതായി ഒരാൾക്ക് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്

ലോകാരോഗൃ സംഘടന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ മതിയായ അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഗുളികകളുടെ വിൽപ്പന നിരോധിച്ചത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്കൂളുകൾ തുറക്കുക

സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായുള്ള മൂന്ന് പതിറ്റാണ്ടിലേറെ യുള്ള പരിചയ സമ്പന്നതയും ആഫ്രിക്കൻ മേഖലകളിലുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളുമാണ് ലിൻഡയ്ക്ക് നിയുക്ത സ്ഥാനത്തേക്ക് മുതൽക്കൂട്ടാവും